മൂന്നുംഗ സമിതി എട്ടാ ഴ്ചക്കകം മധ്യസ്ഥ നടപടികൾ പൂർത്തിയാക്കണം

നാരീ ശക്തി പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും കോൺഗ്രസ് മുസ്ലീം ലീഗ് ഉഭയകക്ഷി ചർച്ച കോഴിക്കോട്ട് പൂർത്തിയായി

മുൻ സുപ്രീംകോടതി ജഡ്ജി എഫ് എം ഖലീഫുള്ള അധ്യക്ഷനായ സമിതിയിൽ മുതിർന്ന അഭിഭാഷകൻ ശ്രീറാം പഞ്ചുവും ശ്രീ ശ്രീരവിശങ്കറും അംഗങ്ങളായിരിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ അഞ്ചംഗ ഭരണഘടന ബെഞ്ച് വിധി യിൽ വൃക്തമാക്കി

സമിതിയുടെ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മാധ്യമ ങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സമിതിയുടെ നടപടികൾ രഹസ്യമാക്കുന്നതിൽ കോടതിയുടെ നിരീക്ഷണം ഉണ്ടാകുമെന്നും ചീഫ് ജസ്റ്റിസ് അറിയിച്ചു

ആവശൃമെങ്കിൽ സമി തിക്ക് കൂടുതൽ പേരെ പാനലിൽ ഉൾപ്പെടുത്താമെന്നും കൂടുതൽ നിയമസഹായം ആവശ്യപ്പെടാമെന്നും ഡിവിഷൻ ബെഞ്ച് അറി യിച്ചു ്സമിതിക്കി ഫൈസാബാദിൽ എല്ലാ സൌകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ഉത്തർ പ്രദേശ് ഗവൺമെന്റിനോടും ആവ ശ്യപ്പെട്ടിട്ടുണ്ട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീ സമൂഹത്തിന് ആശംസ നേർന്നു

വിവിധ മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളിൽ ഓരോ ഇന്തൃക്കാരനും അഭിമാനം കൊള്ളുന്നുവെന്നും നാരി ശക്തിയെ അഭിവാദൃം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ വനിതകൾക്ക് നൽകുന്ന പരമോന്നത സിവിലി യൻ ബഹുമതിയായ നാരി ശക്തി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ഇന്ന് സമ്മാനിക്കും

ബേഠി ബചാവോ ബേഠി പഠാവോ പദ്ധതിയിൽ പെൺകുട്ടി കളുടെ സുരക്ഷക്കും പുരോഗതിക്കും വഴിയൊരുക്കിയ സംസ്ഥാ നങ്ങളും വൃക്തികളും സംഘടനകളുമാണ് പുരസ്കാരത്തിന് അർഹരായത് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം നിശാ ഗന്ധി ഓഡിറ്റോറിയത്തിൽ നിർവഹിക്കും

ഇന്ന് സംസ്ഥാനത്തെ പ്രധാന പൊലീസ് സ്റ്റേഷനുകളിൽ വനിതാ പൊലീസ് ഉദ്യോഗസ്ഥർക്കാണ് പ്രധാന ചുമതലകൾ സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക രണ്ടു ദിവസത്തിനകം തയ്യാറാവും തിങ്കളാഴ്ച ഡൽഹിയിൽ ചേരുന്ന കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി പട്ടികയ്ക്ക് അംഗീകാരം നല്കിയേക്കും

എന്തിനു വേണ്ടിയാണ് യു ഡി എഫ് വിട്ടതെന്നും എന്ത് നേടിയെന്നും എം പി വീരേന്ദ്രകുമാർ വ്യക്തമാക്കണമെന്ന് അദ്ദേഹം കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രിയോ എൽ ഡി എഫോ വീരേന്ദ്രകുമാറുമായി ചർച്ച നടത്താൻ തയ്യാറായില്ലെന്നും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലയിൽ സഹതാപം തോന്നുന്നു ണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനവുമായി ബന്ധ പ്പെട്ട് കോൺഗ്രസ് മുസ്തീം ലീഗ് ഉഭയകക്ഷി ചർച്ച കോഴിക്കോ ട്ട് പൂർത്തിയായി തീരുമാനം നാളെ പാണക്കാട്ട് നടക്കുന്ന ലീഗ് പ്രവർത്തക സമിതിയിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രമേശ് ചെന്നിത്തല യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ മുസ്തീം ലീഗ് നേതാക്കളായ കെ പി എ മജീദ് ഡോ എം കെ മുനീർ പി വി അബ്ദുൾ വഹാബ് എം പി എന്നിവരാണ് ചർച്ച യിൽ പങ്കെടുത്തത് മൂന്ന് സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യത്തിൽ നേരത്തെ നടന്ന രണ്ട് ചർച്ചകളിലും തീരുമാനത്തിലെത്താത്ത സാഹചര്യ ത്തിലാണ് മൂന്നാം തവണയും ചർച്ച നടന്നത് യു ഡി എഫ് സീറ്റ് തന്നപ്പോഴത്തെ സ്ഥിതി ജനങ്ങൾക്കറിയാ മെന്ന് എം പി വീരേന്ദ്രകുമാർ പ്രതികരിച്ചു വൻ ഭൂരിപക്ഷത്തിൽ തന്നെ തോൽപ്പിക്കുകയാണ് യു ഡി എഫ് ചെയ്തതെന്ന് അദ്ദേഹം കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി അതിനിടെ വീരേന്ദ്രകുമാറുമായി സിപിഐഎം നേതാക്കൾ കോഴിക്കോട്ടെ അദ്ദേഹത്തിന്റെ വസതിയിൽ ചർച്ച നടത്തി സിപി ഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി എളമരം കരീം എ പ്രദീപ് കുമാർ എം എൽ എ എന്നിവരാണ് ചർച്ച നടത്തിയത്

പൊന്നാനി ലോക്സഭ മണ്ഡലത്തിലെ സ്ഥാനാർഥിയെ തീരുമാനിക്കാനാണ് യോഗം ബി ജെ പി പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് ന്യൂഡൽഹി യിൽ ചേരും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പാർട്ടി യുടെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ യോഗം അവലോകനം ചെയ്യും പ്രചാരണ തന്ത്രങ്ങൾക്കും രൂപം നൽകും ലോക്സഭ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫും യു ഡി എഫും രഹസൃ ധാരണക്ക് ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ആരോപിച്ചു മുന്നണികൾ പര സ്പരമോ കോൺഗ്രസും സിപിഐഎമ്മും തമ്മിലോ എതിർപ്പ് പ്രകടിപ്പിക്കുന്നില്ല

ജനങ്ങൾ ഇത് തിരിച്ചറി യണമെന്ന് പരിവർത്തന യാത്രയുടെ ഭാഗമായി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ എം ടി രമേശ് പറഞ്ഞു

നിലമ്പൂരിലെ വനങ്ങളിലും വൈത്തിരിയിലും ഇൌ ഗവൺമെന്റിന്റെ കാലത്ത് മാവോയിസ്റ്റുകളെ ്കൊല്ലേണ്ടി വന്നതിന് കാരണം തെറ്റായ സമീപനവും നയമില്ലായ്മയുമാ ണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി

പരാജയമാണെന്നും പ്രതിപക്ഷത്തെ വിശ്വാ സത്തിലെടുക്കാൻ ഗവ തയ്യാറായിട്ടില്ലെന്നും ചെന്നിത്തല കുറ്റ പ്പെടുത്തി വയനാട് വൈത്തിരിയിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോ യിസ്റ്റ് സി പി ജലീലിന്റെ പോസ്റ്റുമോർട്ടം കോഴിക്കോട് മെഡി ക്കൽ കോളെജിൽ പുരോഗമിക്കുന്നു പൊലീസ് സർജന്റെ നേതൃ ത്വത്തിൽ നടക്കുന്ന പോസ്റ്റുമോർട്ടം പൂർത്തിയായാൽ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാൻ പൊലീസ് തീരുമാനിച്ചു

വൈത്തിരി സംഭവത്തിൽ മാവോയിസ്റ്റുകൾക്കെതിരെ പൊലീസ് രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു പൊലീസിനെതിരെ വെടിവെച്ചതിനും റിസോർട്ട് ഉടമയിൽ നിന്ന് പണം പിരിച്ചതിനു മാണ് കേസ്

വീടുകളിൽ വെള്ളത്തിന്റെ ഉപയോഗം കാര്യക്ഷമമാക്കാനും മിതവ്യയം ശീലിക്കാനും ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷൻ വിപു ലമായ പ്രചാരണ പ്രവർത്തനം സംഘടിപ്പിക്കും

ഇതോടൊപ്പം കുടുംബ ശ്രീയുടെ നേതൃത്വത്തിൽ കുളം കിണർ മറ്റ് ജലശ്രോതസുകൾ എന്നിവ വൃത്തിയാക്കുന്ന പ്രവർത്തന്വും നടത്തും ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ പുതിയ വാതിൽ തിങ്കളാഴ്ച്ച സ്ഥാപിക്കും വാതിൽ സമർപ്പണ ഘോഷ യാത്ര പള്ളിക്കത്തോട് ഇളമ്പള്ളി ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്നും ഞായറാഴ്ച്ച രാവിലെ പുറപ്പെടും രാത്രി ഘോഷയാത്ര ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും ജർമ്മൻ ചലച്ചിത്രമേളയ്ക്ക് നാളെ കോഴിക്കോട്ട് തുടക്കം

അശ്വിനി ഫിലിം സൊസൈറ്റി കോഴിക്കോടും തിരുവനന്തപുരം ഗെയ്ഥെ സെന്ററും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത്

പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പിടിയിലായ മുൻ ഇമാം ഷെഫീഖ് അൽ ഖാസിമിയുടെ അറസ്റ്റ് നെടുമങ്ങാട് പൊലീസ് രേഖപ്പെടുത്തി

സോഷ്യൽ മാധ്യമങ്ങൾ വഴി ഇരയുടെ പേര് വെളിപ്പെടുത്തിയ ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്ന് റൂറൽ എസ് പി അശോക് കുമാർ അറിയിച്ചു

നേരത്തെ ട്രെയിൻ അനുവദിച്ചെങ്കിലും യാത്ര ക്കാർക്ക് സൌകര്യപ്രദമായ സമയത്തായിരുന്നില്ല ട്രെയിൻ സർവീ സ്

ഇ അഹമ്മദ് സ്മാരക പുരസ്കാരത്തിന് പ്രൊഫ ആലിക്കുട്ടി മുസ്പ്യാരെയും ടി പി അബ്ദുള്ളക്കോയ മദനിയെയും തിരഞ്ഞെ ടുത്തു സി എച്ച് വിചാർവേദി ഏർപ്പെടുത്തിയ പുരസ്കാരം അടു ത്തമാസം കോഴിക്കോട്ട് സമ്മാനിക്കും

കാർഷിക വായ്പാ മൊറോട്ടോറിയം ദീർഘിപ്പിച്ച ഗ്വൺമെന്റ് തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും സമ്പൂർണ്ണ കടാശ്വാസം ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ കർഷകർക്ക് നിലനിൽപ്പ് സാധ്യമാവൂ എന്ന് ഇടുക്കി മലനാട് കർഷകരക്ഷാ സമിതി മുരിക്കാശ്ശേരിയിൽ വിലയിരുത്തി കർഷകരെ സമ്മർദ്ദത്തിലാക്കുകയും ഭീഷണിപ്പെ ടുത്തുകയും ചെയ്ത് അവരെ ആത്മഹതൃയിലേക്ക് തള്ളിവിടുന്ന ധനകാരൃസ്ഥാപനങ്ങൾക്കെതിരെ ആത്മഹത്യാപ്രേരണയ്ക്ക് കേസെടുക്കണമെന്നും ആത്മഹത്യ ചെയ്ത കർഷകരുടെ കട ങ്ങൾ എഴുതിത്തള്ളണമെന്നും അവർ ആവശ്യപ്പെട്ടു